തെച്ചിക്കോട്ടുകാവ് രാമ ചന്ദ്രന്റെ ആരോഗ്യ പരിശോധനയും ഇന്ന് നടക്കും

ഈ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്നലെ വൈകീട്ട് അവസാനിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ പ്രചാരണരംഗത്തുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്ത് പകർച്ചവൃാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാവും ഇന്നും നാളെയുമായി നടക്കുന്ന ശുചീകരണ യജ്ഞത്തിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളുമടക്കം അജൈവ മാലിനൃങ്ങൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ബ്ലോക്ക് ഗ്രാമ പഞ്ചായ ത്തുകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സംഭരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ശുചീകരണ യജ്ഞത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു

ഇന്നലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് സാമഗ്രികൾ പൊലീസ് പരിശോധിച്ചു തൊഴിലാളികളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു വെടിക്കെട്ട് നടത്തുന്ന ഭാഗത്തു നിന്ന് പൊതു ജനങ്ങളെ നൂറുമീറ്റർ മാറ്റിനിർത്തും നാളെ ദേവസ്വങ്ങളുടെ ആനച്ചമയ പ്രദർശനത്തിലെ തിരക്ക് നിയന്ത്രിക്കാനും പൊലീസ് നടപടിയെടുത്തിട്ടുണ്ട്

അഞ്ച് ഐ

എസ്

ഐമാരും ഉൾപ്പെടെ നാലായിരത്തോളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് തൃശൂർ റേഞ്ച് ഐ ജി ബൽറാംകുമാർ ഉപാധ്യായ സിറ്റി പൊലീസ് കമ്മീഷണർ യതീഷ്ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ആരോഗൃ പരിശോ ധനയിൽ വിജയിച്ചാൽ എഴുന്നള്ളിക്കാൻ അനുമതി നൽകുമെന്ന് ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി അറിയിച്ചു ഇന്ന് മൃഗഡോക്ടർമാരുടെ മൂന്നംഗ സംഘം ആനയെ പരിശോധിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒരു മണിക്കൂർ പൂര വിളംബരത്തിൽ പങ്കെടുപ്പിക്കാനായിരിക്കും അനുമതി ഇതേതുടർന്ന് തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടുനൽകുമെന്ന് ഉടമകൾ അറിയിച്ചു രദ്ദമ്പ്പെട്ടറ ആലുവ ചൂർണ്ണിക്കര ഭൂമി വ്യാജരേഖ കേസിൽ റവന്യൂ ജീവനക്കാരൻ അരുൺകുമാറിനെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

തിരുവനന്തപുരം ലാന്റ് റവന്യൂ ഓഫീസിലെ ജീവനക്കാരനാണ് അരുൺകു മാർ

എം മുഹമ്മദ് ഹനീഷ് കൊച്ചി യിൽ അറിയിച്ചു

ഈ ഭാഗവും രണ്ടാംഘട്ടവും കെ

എൽ നേരിട്ട് നിർമ്മിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു

മൃതദേഹം പേട്ട റഹ്മാനിയ പള്ളിയിൽ ഖബറടക്കി

വിസ്മരിക്കപ്പെട്ടവർ എന്ന പേരിൽ മലയാള ത്തിലും അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്

മിക്ക കൃതികളും മലയാളത്തിൽ എഴുതി തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തുകയായിരുന്നു മുഹമ്മദ് മീരാന്റെ മര ണത്തിൽ മുഖ്യമന്ത്രി പിണറായി പ്രിജയൻ അനുശോചിച്ചു മലയാള സാഹിത്യ ലോകവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന മീരാൻ സാമൂഹ്യ പരിവർത്തനങ്ങൾ രചനകളിലൂടെ വരച്ച് കാട്ടിയെന്ന് അനുശോചന സന്ദേ ശത്തിൽ അദ്ദേഹം പറഞ്ഞു മാപ്പിളകലാ അക്കാദമി ചെയർമാൻ ടി കെ ഹംസയും മീരാന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു

കെ അബ്ദുൾ റഹീ മിനെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാ നായി നിയമിച്ചു മുൻ ചെയർമാൻ പി കെ രാമചന്ദ്രമേനോൻ ഛത്തീസ്ഗഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായതോടെയാണ് പുതിയ നിയമനം രദ്ദേഷ്ടങ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ചെന്നൈ സൂപ്പർ കിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വിശാഖപട്ടണത്ത് അവസാന കാളിഫയറിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ചെന്നൈ ഫൈനലിൽ പ്രവേശിച്ചത്

ചെന്നൈയ്ക്ക് ഇത് എട്ടാം ഫൈനലാണ്

എൽ ഫൈന ലിൽ ചെന്നൈയും മുംബൈയും അവസാനമായി ഏറ്റുമുട്ടിയത്

വൈകീട്ട് നാലിന് കോർപ്പറേഷൻ സ്റ്റേഡി യത്തിലാണ് മത്സരം രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട സിവിൽ സർവീസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാവുന്നതെന്ന് ജീവനക്കാർ മനസ്സിലാക്ക ണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർദ്ദേശിച്ചു കാഞ്ഞങ്ങാട് ജോയിന്റ് കൌൺസിൽ സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊച്ചി യിൽ ചേരും

ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും

ത്രിവേണിയിൽ തീർത്ഥാടകർക്ക് കുളിക്കാ നാവശ്യമായ വെള്ളം എത്തിക്കാനാണ് ഡാം തുറക്കുന്നത് തീർത്ഥാടകരും നദിയുടെ തീരവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് രദ്ദേഷ്ടങ ഉയർന്ന തോതിൽ കീടനാശിനികൾ പ്രയോഗിച്ച പഴങ്ങളും പച്ചക്കറിക ളും സംസ്ഥാനത്തേക്ക് എത്തുന്നുവെന്ന വിവരത്തെത്തുടർന്ന് പാലക്കാട് ജില്ലയുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരി ശോധന നടത്തി അന്യസംസ്ഥാന പച്ചക്കറികൾ പഴം വെളിച്ചെണ്ണ മത്സ്യം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ദ്ധ പരിശോധനയ്ക്കായി എറ ണാകുളം റീജനൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു രദ്ദേഷ്ടങ പ്പസ്വൺ പ്രവേശനത്തിന് ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷ നൽകാൻ സംസ്ഥാനത്തെ മുഴുവൻ അക്ഷയ കേന്ദ്രങ്ങളിലും സൌകര്യ മേർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അക്ഷയ സംസ്ഥാന ഡയറക്ടറേറ്റ് അറിയിച്ചു

ആർ അജയ കുമാർ അറിയിച്ചു തോട്ടം മേഖലയിൽ ബോധവത്കരണ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾക്ക് നിർദ്ദേശം നൽകി

എ കാസർകോട് ജില്ലാ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജെ ബി കോശി ദർശ്ശേദം അക്രമ രാഷ്ട്രീയം അനാഥമാക്കുന്ന് കുടുംബങ്ങളുടെ കഥ പ്രമേയമാ ക്കിയ കുരുത്തി എന്ന നാടകത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി സി

എമ്മിന്റെ സഹിഷ്ണുതയില്ലായ്മയ്ക്ക് പ്രകട ഉദാഹരണമാണെന്ന് തപസ്യ കലാസാഹിത്യവേദി കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ പുരോഗമന കലാസാ ഹിത്യ സംഘവും മാർക്സിസ്റ്റ് പാർട്ടിയും നിലപാട് വ്യക്തമാക്കണമെന്ന് തപസ്യ ആവശ്യപ്പെട്ടു രുട്ടിട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് ചെങ്ങോട്ടുമലയിലെ ഖനനത്തിന് ഏകജാലകം വഴി അനു മതി നൽകാനെടുത്ത തീരുമാനം നീട്ടിവെയ്ക്കണമെന്ന് പുരുഷൻ കടലുണ്ടി എം

എ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു

വാഹന ഡ്രൈവർ സിയാദ് മൈസൂർ സ്വദേശിയായ യഹൃ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചാണ് തടി തൃശൂരിലേക്ക് കടത്താൻ ശ്രമി ച്ചത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ട സംസ്ഥാന കാർഷിക യന്ത്രവത്ക്കരണ മിഷനും കൃഷി വകുപ്പ് എഞ്ചി നീയറിംഗ് വിഭാഗവും ചേർന്ന് നടപ്പിലാക്കുന്ന കാർഷിക യന്ത്ര പരിരക്ഷണ യജ്ഞത്തിന് തൊടുപുഴ മുനിസിപ്പൽ കൃഷിഭവനിൽ തുടക്കമായി പ്രളയ ത്തിൽ കേടുപാടുകൾ സംഭവിച്ച കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റ പണി നടത്തി അവ കാർഷിക കർമ്മസേനകൾക്കും കാർഷിക സേവന കേന്ദ്ര ങ്ങൾക്കും കൈമാറുകയാണ് ലക്ഷ്യം ദർവ്വെട്ടറ പാലക്കാട് ജില്ലയിൽ കുഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് നെല്ല് സംഭരണം ഒന്നും രണ്ടും വിളകളിലായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിച്ചത് പാലക്കാട് ജില്ലയിലാണ്

ആലപ്പുഴ തൃശൂർ ജില്ലകളാണ് രണ്ടും മൂന്നും സ്ഥാനത്ത്

എൽ എമാരായ എൻ ഗണപതി ജി വരദൻ എന്നിവരുടെ പേരുകൾ നൽകണ മെന്ന് സഹ്യ ട്രസ്റ്റ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു തിരു ക്കൊച്ചി നിയമസഭയിലും സംസ്ഥാന നിയമസഭയിലും അംഗമായിരുന്നു മൂന്നാർ സ്വദേശിയായ എൻ ഗണപതി അദ്ദേഹം പഠിച്ചത് മൂന്നാർ ഹൈസ്കൂ ളിലാണ് പലതവണ നിയമസഭാംഗമായിരുന്ന ജി വരദന്റെ ജന്മനാടായ സൈലന്റ് വാലിയോട് ചേർന്നാണ് ഗുഡാർവിള ഹൈസ്കൂൾ